രാജസ്ഥാനിലും ബി ജെ പിയെ മറികടന്ന് കോൺഗ്രസിന് മുന്നേറ്റം

എല്ലാ പ്രശ്നങ്ങളും പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ സന്നദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

അന്തരിച്ച അംഗങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു

ജമ്മുകാശ്മീരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ നാല് പോലീസുകാർ കൊല്ലപ്പെട്ടു

ലൈംഗിക പീഡനങ്ങൾക്കും അതിക്രമങ്ങൾക്കും ഇരയാകുന്നവരുടെ പേരുവിവരങ്ങൾ വെളിപ്പെടുത്തരുതെന്ന് മാധൃമങ്ങളോട് സൂപ്രീംകോടതി

ജെ

മധ്യപ്രദേശിൽ ഇ്രുപാർട്ടികളും ഒപ്പത്തിനൊപ്പമാണെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ഫലസൂചന മിസോറാമിൽ മിസോനാഷണൽ ഫ്രണ്ടിന് കോൺഗ്രസിനുമേൽ അട്ടിമറി വിജയം ശക്തമായ തിരിച്ചുവരവ് അറിയിച്ച് തെലങ്കാനയിൽ ടി

കൂടുതൽ വിവരങ്ങളുമായി അർച്ചനാ സതീഷ്

കോൺഗ്രസ് അഞ്ചും ബി ജെ

ഛത്തീഗഢ് മധ്യപ്രദേശ് രാജസ്ഥാൻ തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ അവസാനവട്ട വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ് മിസോറാമിൽ മുഖ്യമന്ത്രി ലാൽ തൻവാല മത്സരിച്ച രണ്ട് സീറ്റുകളിലും പരാജയപ്പെട്ടു

എൻ എഫ് പ്രവർത്തകർ ഐസ്വാളിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ ആഫ്ലാദ പ്രകടനങ്ങൾ നടത്തുന്നതായി ആകാശവാണി ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു

എസ് മുന്നിട്ട് നിൽക്കുന്നു

എസ് മുന്നേറ്റം തുടരുന്നു

എ എം ഐ

ജെ

ചന്ദ്രശേഖര റാവു അമ്പത്തൊന്നായിരത്തില്ലധിക്ം വോട്ടുകൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രത്യ്പ്പ്റെഡിയെ പരാജയപ്പെടുത്തി

ജെ

പി നാലും ആർ എൽ ഡി ഒന്നും സ്ഥാനങ്ങളിൽ വിജയിച്ചു

ജെ

നിയമസഭാ സ്പീക്കറും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ കൈലാഷ് ചന്ദ്ര നെഹ്വാൾ കോൺഗ്രസ് നേതാവ് സച്ചിൻപൈലറ്റ് മുൻ മുഖ്യമന്ത്രി അശോക് ഗഹ്ലോട്ട് തുടങ്ങിയവരും വിജയിച്ച പ്രമുഖരിൽപ്പെടുന്നു

ജെ പി മുന്നിട്ട് നിൽക്കുമ്പോൾ കോൺഗ്രസ് മുന്നേറുന്നു ബുദിനി മണ്ഡലത്തിൽ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മുന്നിട്ട് നിൽക്കുകയാണ്

ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി കൈലാശ് വിജയ് വാർഗിയയുടെ മകൻ ആകാശ് വിജയ് വാർഗിയ ഇൻഡോർ മൂന്നിൽ പിന്നിട്ട് നിൽക്കുമ്പോൾ ഹൊഷങ്കാബാദ് സീറ്റിൽ ബി ജെ പി നേതാവും നിയമസഭാ സ്പീക്കറുമായ സീതാശരൺ ശരമ്മയ്ക്ക് എതിരെ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി സർത്താജ് സിംഗും പിന്നിലാണ്

കോൺഗ്രസ് സ്ഥാർത്ഥിയും മുൻ പ്രധാനമന്ത്രി അടൽബിഹാരി വാജ്പേയുടെ അനന്തരവളുമായ കരുണ ശുക്സ ഇതേ മണ്ഡലത്തിൽ പിന്നിലാണ് മാർവാഹി സീറ്റിൽ ഛത്തീസ്ഗഢ് മുൻമുഖൃമന്ത്രിയും ജനതാ കോൺഗ്രസ് നേതാവുമായ അജിത്ത് ജോഗി മുന്നിലാണ്

പഠാൻ സീറ്റിൽ സംസ്ഥാന കോൺഗ്രസ് അദ്ധ്യക്ഷൻ ഭൂപേഷ് ബാഖേൽ മുന്നിട്ട് നിൽക്കുന്നതായാണ് ഫലസൂചന ന്യൂസ്ഡെസ്ക് ആകാശവാണി

പാർലമെന്റിന് പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ പ്രശ്നങ്ങളും പാർലമെന്റിന്റെ ഇരുസഭകളിലും ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണെന്ന് ശ്രീ

ജനങ്ങൾക്ക് ഏറെ താത്പര്യമുള്ളതും പ്രാധാന്യമേറിയതുമായ നിരവധി നിയമ നിർമ്മാണ ബില്ലുകൾക്ക് നടപ്പു സമ്മേളനത്തിൽ തീർപ്പുകൽപ്പിക്കേണ്ടതുണ്ടെന്നും സമ്മേള്ളന്ന നടപടികൾ സുഗമമായി നടപ്പാക്കാൻ കഴിയുമെന്നും പ്പ്ധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു പാർലമെന്റ് ശീതകാ്ലസ്സ്മ്മേളനത്തിന്റെ ആദ്യദിവസമായ ഇന്ന് അന്തരിച്ച് പാർലമെന്റ് അംഗങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച്ൾഷം ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു പാർലമെന്റ് അർഗങ്ങളായിരുന്ന മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയ് മുൻ ലോക്സഭാ സ്പീക്കർ സോംനാഥ് ചാറ്റർജി മുൻ പാർലമെന്ററി കാര്യമന്ത്രി അനന്ദ് കുമാർ എന്നിവർക്കാണ് ആദരാജ്ഞലി അർപ്പിച്ചത്

സ്ത്രീകളുടെയും കുട്ടികളുടെയും കൌമാരക്കാരുടെയും ആരോഗൃ സംബന്ധമായ പ്രവർത്തനങ്ങളിൽ അറിവും വിശ്വാസ്വതയും വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് പങ്കാളിത്ത ഫോറം സമ്മേളനം സംഘടിപ്പിക്കുന്നത്

തമിഴ്നാട്ടിന്റെ പ്രകൃതി സമ്പത്തും സാംസ്ക്കാരിക പൈതൃകവും കാത്തുസ്കൂക്ഷിക്കുന്നതിനും വിനോദ സഞ്ചാര മേഖലയിലെ ഭൌത്രീക്ക് സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമാണ് എഡ്ഡി

തെക്കൻ കശ്മീരിൽ ഷോപ്പിയാൻ ജില്ലയിലെ സൈനാപോറ മേഖലയിൽ ഇന്ന് ഉച്ചതിരിഞ്ഞാണ് ഭീകരർ പോലീസുകാരുമായി ഏറ്റുമുട്ടിയത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ അധിവസിക്കുന്ന മേഖലയിൽ പോലീസുകാർ സുരക്ഷാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കവെയാണ് ആക്രമണം ഉണ്ടായത് എന്ന് സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു

പേര് വിവരങ്ങൾ ഒരു രീതിയിലും വെളിപ്പെടുത്തുന്ന നടപടികൾ സ്വീകരിക്കരുതെന്ന് അച്ചടി ഇലക്ട്രോണിക് മാധ്യമങ്ങൾക്ക് കോടതി കർശന നിർദ്ദേശം നൽകി പ്രായപൂർത്തിയാകാത്തവർക്കെതിരെയുള്ളത് ഉൾപ്പെടെയുള്ള ലൈംഗിക പീഡന കേസുകളുടെ പ്രഥമ വിവര റിപ്പോർട്ടുകൾ പരസ്യപ്പെടുത്തരുതെന്നും പ്പൊലീസിനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു

മ്യാൻമർ സന്ദർശനത്തിന് എത്തിയ രാഷ്ട്രപതിയെ രാവിലെ മ്യാൻമർ പ്രസിഡന്റ് തന്റെ വസതിയിൽ ഔപചാരിക സ്വീകരണവും ഗാർഡ് ഓഫ് ഓണറും നൽകി സ്വീകരിച്ചു മ്യാൻമർ പ്രസിഡന്റും സ്റ്റേറ്റ് കൌൺസിലറുമായുള്ള ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയും മ്യാൻമറും തമ്മിൽ രണ്ട് ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു സിവിൽ ക്രിമിനൽ നിയമങ്ങളിലും പരിസ്ഥിതി ആരോഗ്യ നിയമശാസ്ത്രത്തിലും മ്യാൻമർ നിയമ ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യയിൽ പരിശീലനം നൽകുക ശാസ്ത്രസാങ്കേതിക രംഗങ്ങളിൽ പ്രത്യേക മേഖലകളിൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുക എന്നീ രണ്ട് ധാരണാപത്രങ്ങളിലാണ് ഇന്ത്യയും മ്യാൻമറും ഒപ്പുവെച്ചത്

റിസർവ് ബാങ്കിന്റെ ക്ട്രൂതൽ ധനം സംബന്ധിച്ച് ആരോപണമുന്നയിച്ചാണ് ധനക്ട്രരൃമ്പ്തിക്കെതിരെ അഭിഭാഷകൻ പൊതുതാൽപര്യ ഹർജി സൂമർപ്പിച്ചത്

ബി ഐ ആശയക്കുഴപ്പത്തിലാണെന്നും പൊതുതാല്പരൃ ഹർജി അടിയന്തിരമായി പരിഗണിക്കണമെന്നും ഇന്ന് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടെങ്കിലും പരമോന്നതകോടതി ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ചു

ഭല്ലയുടെ രാജി സ്വീകരിച്ചതായി ആകാശവാണി ലേഖകൻ ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തു

എഫ് ലോക ബാഡ്മിന്റൺ ട്ടൂർണമെന്റ് ഫൈനൽ ചൈനയിലെ ഗുവാങ്ഷോവിൽ നാളെ ആൽഭിക്കും ഇന്ത്യയിൽ നിന്നും പി

സിന്ധുവും സമീർ വിർമ്മയും മാത്രമാണ് ഫൈനൽ യോഗ്യത നേടിയിട്ടുള്ളത് വനീത്പു സിംഗിൾസിലെ ഗ്രൂപ്പ് എ യിൽ പി

സിന്ധുവുര് പ്പുരുഷ വിഭാഗം ഗ്രൂപ്പ് ബി യിൽ സമീർ വർമ്മയും മത്സരിക്കും

സൈബർ കുറ്റകൃതൃങ്ങൾ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു